സർവ്വ സജ്ജീകരണങ്ങളുമായി ഐ എസ് ആർ ഒ

ടെ ഭേദഗതി ചെയ്ത മോട്ടോർ വാഹ്ഹന്ന നിയമം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ

ഗുണമേന്മയുള്ള ഭക്ഷണം എന്ന പ്രമേയവുമായി രാഷ്ട്രീയ പോഷൺ മാഹ് ആചരണത്തിന് തുടക്കം

ഇന്ത്യൻ താരം തെജീന്ദെർ പാൽ സിംഗ് ടൂറിന് വെള്ളി

എസ് ആർ

നിയ്മ്യ ലം്ഘനങ്ങൾക്കുള്ള ശിക്ഷ കർശനമാ ക്കുന്നതിന് പുറമെ ഉയർന്നു പ്പീഴ് ചുമത്താനും പുതിയ ഭേദഗതികൾ വ്യവസ്ഥ ചെയ്യുന്നു

പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചാൽ മാതാപിതാക്കൾക്കോ രക്ഷിതാക്കൾക്കോ വാഹന ഉടമയ്ക്കോ എതിരെ കർശന നടപടിയുണ്ടാകും ന്യൂസ് ഡസ്ക് ആകാശവാണി

ഇന്ത്യക്കാരുടെ സ്വിറ്റ്സർലൻഡിലുള്ള സാമ്പത്തിക എല്ലാ അക്കൌണ്ടുകളുടെയും കഴിഞ്ഞ വർഷം മുതലുള്ള വിവരങ്ങളാണ് ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുക

ബി

കർണാടക ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരമാണ് സി ബി ഐ എഫ് ഐ

ബി

ഫോൺ ചോർത്തൽ സംഭവത്തിലൂടെ സംസ്ഥാനത്തെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോർന്നതായും ഇത് വൃക്തികളുടെ സ്വകാര്യതയ്ക്ക് വിരുദ്ധമായ കാര്യമാണെന്നും ഗവൺമെന്റ് വ്യക്തമാക്കി

ഉല്പന്നങ്ങൾ ഇറക്കുമതി നേരത്തേ ഇത്തരം ചെയ്യുന്നതിന് നിയന്ത്രണങ്ങൾ ഇല്ലായിരുന്നെന്നും എന്നാൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളതും കത്തുന്ന സ്വഭാവമുള്ളതൂമായ ഉല്പന്നങ്ങളാകയാൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാറ്റിച്ചുതായും വിദേശ വാണിജ്യ വകുപ്പിന്റെ വാർത്താക്കുറിപ്പിൽ ഷറ്റിയു്നു മുറികളിലെ ദുർഗന്ധം അകറ്റുന്നതിന് ഉപയോഗിക്കുന്നൂ സുഗുന്ധമുള്ള വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

ഷൺമുഖവുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി

ഭീകരവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നേരിടുന്ന വെല്ലുവിളിലകൾ സംബന്ധിച്ച് ഇരുനേതാക്കളും സംവദിച്ചതായി ഔദ്യോഗിക കുറിപ്പിൽ അറിയിച്ചു സുരക്ഷാ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും തീരുമാനമായിട്ടുണ്ട്

മുംബൈ യിലെ സി ബി എഫ്

ആസ്ഥാനത്ത് നടന്ന ചടന്ന ചടങ്ങിൽ വകുപ്പ് സെക്രട്ടറി അമിത് ഖാരെ ചലച്ചിത്ര ബോർഡ് ചെയർമാൻ പ്രസൂൺ ജോഷി നിരവധി ചലച്ചിത്ര പ്രവർത്തകർ തുടുണ്ടിയവർ പങ്കെടുത്തു സർട്ടിഫിക്കറ്റുകളിൽ ക്യൂ

ക്യോപ്സ് സംവിധാനം ഡിജിറ്റൽ ലോകത്തെ മാറ്റങ്ങളുടെ ചുവടുപിടിച്ചാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ശ്രീ

സ്ഥുതാരൃത ഉറപ്പാക്കാനും കൂടുതൽ വിവര ങ്ങൾ ലഭ്യമാക്കാനും ഈ മാറ്റും വഴിതുറക്കുമെന്ന് കേന്ദ്രമന്ത്രി അഭിപ്രായ പ്പെട്ടു

പത്ത് ജില്ലകളിൽ യെല്ലൊ അലർട്ട് തിരുവനന്തപുരം പത്തനംതിട്ട തൃശ്ശൂർ പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലൊ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്

ഗുണമേന്മയുള്ള ഭക്ഷണം നൽകൽ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം സമഗ്ര പോഷണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കൊണ്ടുവന്ന പദ്ധതിയാണ് പോഷൺ അഭിയാൻ

കഴിഞ്ഞ മാസം പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടിയിൽ പാവപ്പെട്ടവർ നേരിടുന്ന പോഷണ ദൌർലഭൃത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു

രാജ്യിത്തിന്റെ എല്ലാ മേഖലകളിലും പോഷകാഹാരമെന്ന സന്ദേശം എത്തിക്കുകയും കുട്ടികൾക്ക് നല്ല ഭക്ഷണവും ചികിത്സയും പ്രതിരോധവും നൽകലുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ശ്രീ പ്പോൾ പറഞ്ഞു ആറ് വയസ്സുവരെയുള്ള കുട്ടികൾ കൌമാരക്കാരായ് പെൺകുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരുടെ പോഷകാഹാര ക്രമത്തിൽ പുരോഗതിയുണ്ടാക്കുക എന്നതിനും പരിപാടി ലക്ഷ്യമിടുന്നു

കൃഷ്ണപട്ടണം തുറമുഖവും അതിന്റെ ഉൾപ്രദേശങ്ങളും തമ്മിൽ ചരക്ക് ട്രെയിൻ സർവ്വീസുകൾക്കായി സൌകര്യമൊരുക്കുന്നതിന് ഈ തുരങ്കം സഹായകമാണ്

വടക്കൻ മേഖലാ കമാന്റർ ലഫ്

രണ്ടു ദിവസം നീണ്ടുനിൽക്കുന്ന സന്ദർശനത്തിൽ പാകിസ്ഥാള്റ്റ് ഖ്പടിനിർത്തൽ കരാർ ലംഘനം നുഴഞ്ഞുകയറ്റം എന്നിപ്പ് തടയുന്നതിനുളള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും യുവിക്ക്ക്ളെ ഭീകര സംഘടനകൾ ആകർഷിക്കുന്നത് തടയുന്നതിനുമാണ് പ്രാധാന്യം നൽകിയിരി ക്കുന്നത്

ഇതോടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടുന്ന മുന്നാ മത്തെ ഇന്ത്യൻ താരമായി ബുംറ മാറി ഹർഭജൻ സിംഗ് ഇർഫാൻ പത്താൻ എന്നിവരാണ് ഇതിനു മുൻപ് ഈ നേട്ടം സ്വന്തമാ ക്കിയ ഇന്ത്യൻ ബൌളർമാർ

നേരത്തേ ഹനുമാ വിഹാരി നേടിയ സെഞ്ചറിയാണ് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ നേടിക്കൊടുത്തത്

ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ഇന്നലെ നടന്ന ഐ

എസ്

ഏപ്രിലിൽ നടന്ന ഏഷ്യൻ അത്ല റ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണം നേടിയ താരം ലോക ചാമ്പ്യൻഷി പ്പിനും യോഗ്യത നേടിയിരുന്നു